എൽ രണ്ടാം യോഗ്യതാ മൽസരത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സ് പോരാട്ടം

കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ര്യോഹ്ത്തക്കിലും ഹിമാചൽപ്രദേശിലെ മണ്ഡിയിലും പഞ്ചാബില്പ് ഹോഷിയാർപൂരിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഹിസ്സാറിലെ ബാർവാലയിലും ഹരിയാനയിലെ ചാർഖി ദാദ്രിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഹിമാചൽ പ്രദേശിലും ചണ്ഡിഗഡിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും ന്യൂസ് ഡസ്ക് ആകാശവാണി

നേരത്തെ ഈ മാസം ഏഴ് വരെ മറുപടി നൽകാൻ രാഹുൽഗാന്ധിക്ക് സമയം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഈ മാസം ആദ്യമാണ് കമ്മീഷൻ രാഹുൽഗാന്ധിക്ക് നോട്ടീസ് നൽകിയത് മറുപടി നൽകുന്നതിന് രാഹുൽഗാന്ധി കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സമയപ്പരിധി നീട്ടി നൽകിയതെന്ന് കമ്മീഷൻ അറിയിച്ചു

സംശയാസ്പദമായ സാഹചര്യത്തിൽ പാക് സൈനികനെ അതിർത്തിക്ക് സമീപം കണ്ടെത്തുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ മൊഹമ്മദ് അഫ്സൽ എന്ന ഇയാൾ പാകിസ്ഥാനിലെ ഷാക്കേർഗട്ടിൽ നിന്നാണ് എത്തിയതെന്ന് കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ പോലീസിന് കൈമാറി ജമ്മുകാശ്മീരിൽ ഇയാൾ എത്തിയതിന് പിന്നിലുള്ള ഉദ്ദേശൃം അന്വേഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു

കേസ് രമൃമായി പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് നേരത്തെ വിട്ടിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് എസ്

ബോബ്ഡെ ഡി

ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജി ഫക്കീർ മുഹമ്മദ് ഇബ്രാഹീം ഖലീഫുള്ളയുടെ നേതൃത്വത്തിൽ ആത്മീയാചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചൂ എന്നിവരൾപ്പെടുന്ന സമിതിയെയാണ് മധൃസ്ഥാ ചർച്ചയ്ക്കായി നിയോഗിച്ചിരുന്നത് എട്ട് ആഴ്ചക്കുള്ളിൽ ചർച്ചനടത്തി ഫലമറിയിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത് മാർച്ച് എട്ടിന്റ്രൂണ് മധ്യസ്ഥ ചർച്ചയ്ക്കായി സമിതിയെ നിയോഗിച്ചത്

ഗാവോം കല്യാൺ സമിതിയുടെ സഹായത്തോടെ ദുരിതബാധിതർക്ക് വേണ്ട അവശ്യ സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തുവരികയാണ് അതേസമയം ഒഡീഷയുടെ പടിഞ്ഞാറൻ ജില്ലകളിൽ നിലനിൽക്കുന്ന തീവ്ര ഉഷ്ണതരംഗം മേഖലയിലെ ജീവിതം വീണ്ടും ദുരിതത്തിലാക്കി

ഉയർന്ന താപനില ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

എസ് എഫ് ജവാൻ തേജ് ബഹാദൂർ യാദവ് നൽകിയ ഹർജിസ്ുപ്രീം കോടതി തള്ളി വാരാണസിയിൽ നിന്ന് മത്സരിക്കാർനാണ് തേജ്ബഹാദൂർ യാദവ് നാമനിർദ്ദേശ പത്രിക നൽകൃിയിരുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രധാന്തി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാനാണ് തേജ് ബ്ലഹാദൂർ യാദവ് പത്രിക നൽകിയിരുന്നത്

അമേരിക്കയുടെ നടപടി ഇറാന്റെ ഖനന വൃവസായത്തെ തകർക്കുമെന്ന് റഷ്യൻ വിദേശകാരൃമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനും ലോകരാജൃങ്ങളും സ്ഥിതി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വഴികൾ കണ്ടെത്തണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു അതിനിടെ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു

കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനെത്തിയ ചൈനീസ് മധ്യസ്ഥർ തിരികെ പോയതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം ചൈനീസ് ഉത്പന്നങ്ങൾക്ക് നൂറ് ബില്യണോളം താരിഫ് ചുമത്തിയതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉട്ട്ളെടുത്തത് അതിനിടെ വിഷയത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിങ്പിങ്ങിൽ നിന്ന് കത്ത് ലഭിച്ചതായും പിന്നീട് അദ്ദേഹ്വുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുമെന്നും ട്രംപ്പ് അറിയിച്ചു

ഇവരിൽ പതിനൊന്ന് ചൈനക്കാരും ഉൾപ്പെടുന്നു രണ്ട് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റാരോപിതരെ നാളെ കോടതിയിൽ ഹാജരാക്കാൻ ഫെഡറൽ അന്വേഷണ ഏജൻസിയ്ക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അമീർ റാസ നിർദ്ദേശം നൽകി

എ അറസ്റ്റ് ചെയ്തിരുന്നു ലാഹോർ ഇസ്താമാബാദ് റാവൽപിണ്ടി ഫൈസലാബാദ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം

ഇന്നു പുലർച്ചെ ജമീല മാർക്കറ്റിനു സമീപമാണ് ചാവേർ പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

വെങ്കയ്യൂ നിറ്റിഡു നാല് ദിവസ സന്ദർശനത്തിനായി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിലെത്തി വിയ്റ്റ്നാമിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും

വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

വിയറ്റ്നാമുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുക ലക്ഷ്യമിട്ടാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം

ഈ മൽസരത്തിലെ വിജയി ഞായറാഴ്ച ഹൈദരാബാദിൽ നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റൂമുട്ടും

പോയിന്റ് പട്ടികയിൽ മൂന്ന് ടീമുകൾക്കും രണ്ട് പോയിൻ്റുകളാണുള്ളത് റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ സൂപ്പർനോവയും റവലോസിറ്റിയും ഫൈനലിൽ ഏറ്റുമുട്ടും

മൂന്നാമത്തെ ഏറ്റവും മികച്ച സ്കോർ ഗാനിമത് ഇന്നലെ വനിതകളുടെ സ്കീറ്റ് ഇനത്തിൽ നേടി ഈ മൽസരത്തിൽ ജയിച്ചാൽ അടുത്ത വർഷം ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക് മൽസരങ്ങളിൽ പങ്കെടുക്കാനാകും